നിർമ്മല സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു

ആരോഗ്യം ഭൌതികവും സാമ്പത്തികവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്തിന്റെ സമഗ്ര വികസ്ന്റ് ് മനുഷ്യ വിഭവത്തിന്റെ പുനരുജ്ജീവനം നൂതന കണ്ടു്പിടുത്തങ്ങൾ ഭരണത്തിനതീതമായ് ഭരണ നിർവഹണം എന്നീ ആറ്റ് ഘടകങ്ങളിൽ അധിഷ്ടിതമായാണ് ധനമന്ത്രി ഇത്തവണത്തെ ബ്ജറ്റ് പ്രഖ്യാപിച്ചത്

കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള അടച്ചുപൂട്ടൽ കാലത്ത് കേന്ദ്ര സർക്കാർ നടപടികൾ രാജ്യത്തെ പിടിച്ചുനിർത്തി പ്രധാനമന്ത്രി ഗരീബ് കല്ല്യാൺ യോജന പാവപ്പെട്ടവർക്ക് സഹായമായി പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ആത്മനിർഭർ ഭാരത് സഹായിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു

കോവിഡ് പ്രതിസന്ധി നേരിട്ട നടപ്പ് വർഷത്തെ ധനകമ്മി മൊത്തം ആഭ്യന്തര ഉല്പാദനം ജി ഡി

എം

ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ൾക്തിപ്പെടുത്തുകയും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും

ആരോഗ്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും കോവിഡ് വാക്സിൻ രാജ്യത്തിന്റെ നേട്ടമെസ്റ് ്ധനമന്ത്രി

നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിനെ ശക്തിപ്പെടുത്തും

ഇതിൽ മധുര കൊല്ലം വാണിജ്യ ഇടനാഴിയും ഉൾപ്പെടുന്നു

കർഷകരുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞു

കൊച്ചിയിലേത് ഉൾപ്പെടെ രാജ്യത്ത് അഞ്ച് ഫിഷിംഗ് ്ഹാർബറുകളെ ഫിഷിംഗ് ഹബ്ബുകളാക്കും

ലേയിൽ പുതിയ കേന്ദ്ര സർവകലാശാല തുറക്കും

വിദ്യാഭ്യാസ മേഖലയിൽ യു എ

ജപ്പാൻ എന്നീ രാജൃങ്ങളുമായി സഹകരിക്കും

ഇക്കുറി ഇതാദൃമായി ഡിജിറ്റൽ സെൻസസ് നടപ്പാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു

റെയിൽവേ വികസനത്തിന് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് അടങ്കൽ മെട്രോ ശൃംഖല വ്യാപിപ്പിക്കും

നികുതി സമ്പ്രദായം കൂടുതൽ സുത്യാരമാക്കും

പെൻഷൻ പലിശയിനങ്ങളിൽ വരുമാനമുള്ളവർക്കാണ് ഇളവ്

സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവ് തുടരും

പ്രവാസികൾക്കുള്ള ഇരട്ട നികുതി ഒഴിവാക്കും

തുകൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ മൊബൈൽ ഫോൺ എന്നിവയ്ക്ക് വില കൂടും സ്വർണ്ണം ഇരുമ്പ് സ്റ്റീൽ ചെമ്പ് എന്നിവയ്ക്ക് വില കുറയും

കാർഷികാടിസ്ഥാന വികസന സെസ് ഏർപ്പെടുത്തി